നൃൂഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ആദ്യ ട്രെയിൻ പുറപ്പെട്ടു വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് എത്തും

സംസ്ഥാനത്ത് എസ് എസ് എൽ

ഇന്നലെ രാത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേയാണ് പ്രധാനമന്ത്രി സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് സ്വയം പര്യാപ്തതയിലൂടെ മാത്രമേ ഈ നൂറ്റാണ്ടിനെ ഇന്ത്യയുടേതാക്കിത്തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ സാമ്പത്തിക പാക്കേജിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

സ്സ്മിദ്ദ്വ്യവസ്ഥ അടിസ്ഥാന സൌകര്യം സാങ്കേതിക വിദ്യ ഉല്പ്പാദന്ട് പ്രിതർണ ശൃംഖല സാമൂഹിക വൈവിധ്യം എന്നീ അഞ്ച് തൂണുകളെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ സ്വയംപര്യാപ്തത നിലകൊള്ളുന്നത്

ഈ പ്രതിക്ടൂല സാഹചര്യത്തെ നാം അതിജീവിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു

ചെറുകിട ഇടത്തരം കുടിൽ വ്യവസായങ്ങൾക്കും തൊഴിലാളികൾക്കും മധ്യവർഗ്ഗത്തിനും ഗുണകരമാകും പാക്കേജെന്നാണ് കണക്കാക്കപ്പെടുന്നത്

നാലാമത്തെ ലോക്ക് ഡൌൺ നിയമങ്ങൾ മുൻപത്തെതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും

കേന്ദ്ര മന്ത്രിമാരായ നിതിൻ ഗഡ്കരി ഫ്രിക്ടാൾ ് ജാവദേക്കർ എന്നിവരും പാക്കേജിനെ സ്വാഗതം ചെയ്തു

സ്വയം പര്യാപ്തമായ ഇന്തൃ എന്ന പ്രധാനമന്ത്രിയുടെ സ്ഥപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് ഫിക്കി പ്രസിഡന്റ് ഡോ

സാമ്പത്തിക പാക്കേജിനും രാജ്യത്തിന്റെ വികസനത്തിന് പുതിയ മാർഗ്ഗം ചൂണ്ടിക്കാട്ടിയതിനും അസോച്ചം സെക്രട്ടറി ജനറൽ ദീപക് സൂദ് പ്രധാനമന്ത്രിയ്ക്ക് നന്ദി അറിയിച്ചു കോൺഫഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും പാക്കേജിനെ സ്വാഗതം ചെയ്തു

ഐസിഎംആറും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ന്ടാഷ്ണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും സംയുക്തമായാണ് സർവേ സംഘടിപ്പിക്കുന്നത്

ദുബായിൽ നിന്നും ഡൽഹിയിലേക്കും അമൃത്സർലേക്കുമായി രണ്ട് വിമാന സർവ്വീസുകളാണ് ഇന്നുള്ളത് കുവൈറ്റിൽ നിന്ന് അഹമ്മദാബാദിലേക്കും കോഴിക്കോട്ടേക്കുമാണ് രണ്ട് വിമാനങ്ങൾ എത്തുന്നത്

കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള ആളുകളെയാണ് കപ്പലിലെത്തിക്കുന്നത്

ഇതിനായുള്ള ഒരുക്കങ്ങൾ അന്തിമ് ഘട്ടത്തിലാണെന്ന് മാൽഡീവ്സിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സ്റ്റ്ഞ്ജയ് സുധീർ ആകാശവാണിയോട് പറഞ്ഞു

കേരളത്തിലേക്കുള്ള ആദ്യത്തെ സ്പെഷ്യൽ രാജധാനി എക്സ്പ്രസ്സാണ് പുറപ്പെട്ടത് ട്രെയിൻ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് എത്തും ന്യൂഡൽഹി തിരുവനന്തപുരം സ്പെഷ്യൽ രാജധാനി ട്രെയിനിൽ വരുന്ന യാത്രക്കാരുടെ സുരക്ഷാപരിശോധന ഏകോപിപ്പിക്കുന്നതിന് ഇന്റേണൽ സെക്യൂരിറ്റിയുടേയും റെയിൽവേയുടേയും ചുമതലയുള്ള ഡി ഐ ജി എ അക്ബറിനെ നിയോഗിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു ക്രമസമാധാന ചുമതലയുള്ള എ

ജി

എസ് എൽ

പരീക്ഷാ ടൈംടേബിളുകൾ തീരുമാനിച്ചു

മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനും സാമൂഹ്യ അകലം പാലിച്ച് സർവ്വീസ് നടത്തുമ്പോഴുള്ള നഷ്ടം നീക്ക്ത്താനാണ് ചാർജ്ജ് കൂട്ടുന്നതെന്നാണ് വിവരം ബസ് ഉടമകൾ ഇക്കാര്യം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു

ബി

പകർച്ചവ്യാധി സാഹചര്യം മുതലെടുത്ത് രക്ഷാസാമഗ്രികൾ എന്ന വ്യാജേന മയക്കുമരുന്ന് കടത്ത് നടത്തുന്നുവെന്ന് സംശയിക്കുന്നതായി സിബിഐ അറിയിച്ചു ഇന്റർപോളിൽ നിന്ന് ഇതുസംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചശേഷമാണ് ഈ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്

രോഗബാധിത മേഖലകളിൽ നിയന്ത്രണങ്ങൾ കർശനമാണെന്നും ഈ മേഖലക്ക് പുറത്തേക്ക് രോഗം പടരുന്നില്ലെന്നും ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി അന്യ സംസ്ഥാനത്തൊഴിലാളികൾ വൻതോതിൽ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വൈറസ് പടരുന്നത് തടയാൻ വേണ്ട മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

നിലവിൽ അസമിൽ റെഡ്സോണുകൾ ഇല്ല